എം ഇന്ത്യയുടെ ഭൂപടം ഇന്നത്തെ തരത്തിലാകാൻ കാരണം സർദാർ വല്ലഭായ് പട്ടേലിന്റെ വിശ്രമമില്ലാത്ത പ്രവർത്തനമാ ണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

മൂന്ന് ദേശീയപാതാ പദ്ധതികളുടെ നിർമ്മാണോദ്ഘാടനം വൈകിട്ട് തലശ്ശേരി എരഞ്ഞോളിയിൽ

ശബരിമല ഭക്തരെ കള്ളക്കേസിൽക്കുടുക്കി അറസ്റ്റ് ചെയ്യു ന്നുവെന്നാരോപിച്ച് ബി

പി സംസ്ഥാന പ്രസിഡണ്ട് പി എസ് ശ്രീധരൻപിള്ളയുടെ ഉപവാസം തുടങ്ങി ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് അഞ്ചാം ഏക ദി ന ത്തിന് തിരുവനന്തപുരത്ത് ഒരുക്കങ്ങൾ പൂർത്തിയായി ഇന്ത്യയുടെ ഭൂപടം ഇന്നത്തെ രീതിയിലാകാൻ കാരണം സർദാർ വല്ലഭായ് പട്ടേലിന്റെ വിശ്രമമില്ലാത്ത പ്രവർത്തനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിൽ ലയിപ്പിക്കുന്ന കാര്യത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പട്ടേലിനെ കഴിയൂ എന്ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അദ്ദേഹത്തോട് പറ ഞ്ഞതായും മോദി അറിയിച്ചു സർദാർ പട്ടേലിന്റെ ജയന്തി ആഘോ ഷത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ സംഭാവനകൾ സംബന്ധിച്ച് മാധ്യമങ്ങൾക്ക് എഴുതിയ ലേഖനത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം കുറിച്ചത്

ഗ്രാമീണരെ പ്രത്യേകിച്ച് സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ വീക്ഷണമാണ് അമൂലിന്റെ അടിവേരുകളെന്നും അദ്ദേഹം പറഞ്ഞു വിശ്വാസ്യതയുടെയും ആത്മാർത്ഥതയുടെയും ആൾരൂപമായിരുന്ന പട്ടേലിൽ കർഷകർ അതുല്യമായ വിശ്വാസം അർപ്പിച്ചിരുന്നു വെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തെ ഏറ്റവും വലിയ ഡ്രൈഡോക്കിന് കൊച്ചി കപ്പൽശാ ലയിൽ കേന്ദ്ര ഉപരിതലഗതാഗത മന്ത്രി നിതിൻ ഗഡ്ഗരിയും മുഖ്യ മന്ത്രി പിണറായി വിജയനും ചേർന്ന് അൽപ്പസമയത്തിനകം തറ ക്കല്ലിടും മൂന്ന് ദേശീയപാതാ പദ്ധതികളുടെ നിർമാണ ഉദ്ഘാട നം തലശ്ശേരിയിൽ വൈകിട്ട് കേന്ദ്രമന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് നിർവഹിക്കും

തെക്കുകിഴക്കൻ ഏഷ്യയിലെ എല്ലാ കപ്പൽ അറ്റ കുറ്റപ്പണികൾക്കും മാരിടൈം ഹബ്ബായി കൊച്ചി മാറും

ഉദ്ഘാടനത്തിനായെത്തുന്ന മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും വൈകിട്ട് കണ്ണൂർ വിമാനത്താവളത്തിലാണ് ഇറങ്ങുക അതിവേഗ റെയിൽ പദ്ധതിയും നാവികമേഖലയിലെ സഹക രണവും ഉൾപ്പെടെ ആറ് കരാറുകളിൽ ഇന്ത്യയും ജപ്പാനും ഒപ്പു വെച്ചു ടോക്കിയോവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസെ ആബെയും പങ്കെടുത്ത പതിമൂന്നാമത് ഇന്ത്യ ജപ്പാൻ ഉച്ചകോടിയെ തുടർന്നാണ് കരാറുകൾ ഒപ്പുവെച്ച ത് ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യ മന്ത്രിമാരും പ്രതിരോധ മന്ത്രിമാരും പങ്കെടുക്കുന്ന ടു പ്ലസ് ടു ചർച്ച നടത്താനും ഉച്ചകോടി തീരുമാനിച്ചു ചർച്ച ഫലപ്രദമായിരുന്നുവെന്ന് മോദി പിന്നീട് ട്വറ്ററിൽ അറി യിച്ചു മെച്ചപ്പെട്ട സാമ്പത്തിക ബന്ധം പ്രതിരോധ സുരക്ഷാമേഖ ലകളിലെ ശക്തമായ സഹകരണം എന്നിവയും ചർച്ചാവിഷയമാ യതായി പ്രധാനമന്ത്രി പറഞ്ഞു ജപ്പാൻ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി ഡൽഹിയി ലേക്ക് തിരിച്ചു ശബരിമലയിൽ നടന്ന അക്രമസംഭവങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി അക്രമസംഭവങ്ങളിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി പരിഗണിക്കുമ്പോ ഴാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം അന്വേഷണം പ്രഖ്യാപി ക്കുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെ വിവേചനാധികാരമാ ണെന്നും ഇക്കാര്യത്തിൽ ഇടപെടാൻ പരിമിതിയുണ്ടെന്നും കോടതി അറിയിച്ചു

വിജ്ഞാപനം ഇറക്കേണ്ടത് ഗവൺമെന്റുമാണെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ശബരിമല ഭക്തരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റുചെയ്യു ന്നുവെന്നാരോപിച്ച് ബി ജെ പി സംസ്ഥാന പ്രസിഡണ്ട് പി എസ് ശ്രീധരൻപിള്ള തിരുവനന്തപുരത്ത് ഡി

മുതിർന്ന പാർട്ടി നേതാവും എം

എസ് ശ്രീധ രൻപിള്ളയുടെ ഉപവാസത്തിന് പിന്തുണ അറിയിച്ച് ജില്ലാ ആസ്ഥാ നങ്ങളിൽ എസ് പി ഓഫീസുകളിലേക്ക് ബി ജെ പി പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചു ശബരിമല സംഘർഷ ഭൂമിയാക്കുകയും വർഗീയത വളർത്തു കയും ചെയ്യുന്ന ആർഎസ്എസ് ബിജെപി സിപിഐഎം കള ളക്കളിക്കെതിരെ യുഡിഎഫ് ഇന്ന് വൈകിട്ട് കോഴിക്കോട്ട് വിശ ദീകരണയോഗം സംഘടിപ്പിക്കും

യുഡിഎഫ് നേതാക്കൾ പങ്കെ ടുക്കുമെന്ന് കൺവീനർ ബെന്നി ബഹനാൻ തിരുവനന്തപുരത്ത് അറിയിച്ചു

ഇവരാണ് ഇനി പിടിയിലാകാനുള്ളതെന്നും പൊലീസ് അറി യിച്ചു ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട സുപ്രീംകോ ടതി വിധിയുടെ പശ്ചാത്തലത്തിൽ യു ഡി എഫിന്റെ രാഷ്ട്രീയ വിശദീകരണ സമ്മേളനം വൈകിട്ട് കോഴിക്കോട് മുതലക്കുളത്ത് നടക്കും സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ടതിനു പകരം ദേവസ്വം ബോർഡിനെപ്പോലും പോഷകസംഘടനയാക്കാനാണ് സി

ഐ എം ശ്രമിക്കുന്നതെന്ന് ബി

പി നേതാവ് ജെ പത്മകുമാർ പറഞ്ഞു ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വീക രിച്ച ഏകാധിപത്യനിലപാടുകളും പിടിവാശിയും ഉപേക്ഷിക്കണ മെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് ആവശ്യപ്പെട്ടു ശബരിമലയിൽ ചിത്തിര ആട്ടത്തിന് നവംബർ അഞ്ചിന് നട തുറക്കുമ്പോൾ സംസ്ഥാന പൊലീസ് മേധാവി കർശന ജാഗ്ര തയ്ക്ക് നിർദേശം നൽകി മൂന്നാം തിയ്യതി മുതൽ തന്നെ സന്നി ധാനത്തിന്റെ ചുമതല ഏറ്റെടുക്കാനാണ് പൊലീസ് തീരുമാനം

തുലാംമാസ പൂജ ക്കാലത്തെതുപോലെ സംഘർഷ സാധ്യത ഉണ്ടായേക്കാമെന്ന നിഗ മനത്തിലാണ് പൊലീസ് സന്നാഹം ശക്തമാക്കുന്നത്

പമ്പയുടെ ചുമതല ഐ ജി എം ആർ അജിത് കുമാറിനാണ് ഗുരുവായൂർ ദേവസ്ഥത്തിലെ നിയമന അഴിമതിക്കേസിൽ ബി ഡി ജെ എസ് സംസ്ഥാന പ്രസിഡണ്ട് തുഷാർ വെള്ളാപ്പള്ളിക്കെ തിരെ വിജിലൻസ് കുറ്റപത്രംതയ്യാറാക്കി ചട്ടം മറികടന്ന് രണ്ട് ഉദ്യോഗസ്ഥരെ ഉയർന്ന തസ്തികയിൽ നിയമിച്ചെന്ന പരാതിയി ലാണ് നടപടി രണ്ടുപേരെ നിയമിച്ചു കാലഘട്ടത്തിൽ ദേവസം ബോർഡ് അംഗമായിരുന്നു തുഷാർവെള്ളാപ്പള്ളി തിരഞ്ഞെടുപ്പിൽ പണാധികാരം വലിയതോതിൽ ഉയരുന്ന കാലത്ത് മാധ്യമങ്ങളുടെ പങ്ക് ഏറ്റവും വലിയ വെല്ലുവിളിയാ ണുയർത്തുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അഭിപ്രായ പ്പെട്ടു പൊതുജനാഭിപ്രായം സ്വരൂപിക്കുന്നതിൽ വലിയ പങ്കുള്ള മാധ്യമങ്ങൾ വൻകിട ബിസിനസ് ശൃംഖലയുടെ ഭാഗമായി മാറു ന്നത് പ്രതീക്ഷാജനകമല്ലെന്നും അദ്ദേഹം പറഞ്ഞു

ഇക്കാര്യത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും പിണറായി പറഞ്ഞു ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് അഞ്ചാം ഏകദനിത്തിനായി തിരുവ നന്തപുരം കാര്യവട്ടം സ്പോർട്സ് ഹബ്ബ് സ്റ്റേഡിയത്തിൽ ഒരുക്ക ങ്ങൾ പൂർത്തിയായി മറ്റന്നാൾ നടക്കുന്ന മത്സരത്തിൽ പങ്കെടു ക്കാൻ ഇരുടീമുകളും അൽപ്പസമയത്തിനകം എത്തും മുംബൈയിൽ നിന്ന് ജെറ്റ് എയർവേസിൽ എത്തുന്ന ടീമം ഗങ്ങൾക്ക് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ സ്വീകരണമൊരു ക്കും നാളെ രാവിലെ ടീമുകൾ സ്പോർട്സ് ഹബ്ബിൽ പരിശീലനം നടത്തും

പരമ്പരയിൽ രണ്ട് മത്സരങ്ങൾ വിജയിച്ച് ഇന്ത്യയാണ് മുന്നിട്ട് നിൽക്കുന്നത് സംസ്ഥാന സീനിയർ ടെന്നീസ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് കോഴിക്കോട് വി കെ കൃഷ്ണമേനോൻ ഇൻഡോർ സ്റ്റേഡിയ ത്തിൽ തുടങ്ങി മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു

അടുത്തമാസം മഹാരാഷ്ട്രയിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിനുള്ള ടീമിനെ ഈ ടൂർണമെന്റിൽ നിന്ന് തിരഞ്ഞെ ടുക്കും ഇന്ത്യൻ സൂപ്പർ ലീഗ് ഫുട്ബോളിൽ ഇന്ന് ഡൽഹി ഡൈനാ മോസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കൊൽക്കത്തയെ നേരിടും

ഇന്നലെ ജംഷഡ്പൂരിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂർ എഫ് സി മത്സരം സമനിലയിൽ കലാശിച്ചിരുന്നു വെള്ളിയാഴ്ച റാഞ്ചിയിൽ ആരംഭിക്കുന്ന ദേശീയ ജൂനിയർ അത്ലറ്റിക്സിന്റെ കേരള ടീം പാലക്കാട്ടുനിന്ന് യാത്ര തിരിച്ചു

ഹരിയാനയാണ് നിലവിലെ ചാമ്പ്യന്മാർ കേരളം രണ്ടാംസ്ഥാനത്താണ് മീറ്റ് നവംബർ അഞ്ചിന് സമാപി ക്കും

പ്രളയക്കെടുതി നേരിടാൻ സംസ്ഥാന ഗവണ്മെന്റ് ആസൂ ത്രണം ചെയ്ത പദ്ധതികൾ കേന്ദ്രത്തിന്റെയും കോടതിയുടെയും നിലപാടുമൂലം തിരിച്ചടി നേരിടുകയാണെന്ന് മന്ത്രി വി

വിദേശ സഹായം സ്വീകരിക്കാൻ കേന്ദ്രഗവൺമെന്റ് അനുവദിക്കുന്നില്ലെന്നും സുനിൽകുമാർ ആരോപിച്ചു ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ബി ജെ പി കാസർകോട് ജില്ലാകമ്മറ്റി സംഘടിപ്പിക്കുന്ന വിശ്വാസ സംരക്ഷണ സദസ് വൈകിട്ട് കാസർകോട് കോട്ടച്ചേരിയിൽ സുരേഷ് ഗോപി എം

പി ഫണ്ട് ഉപയോഗിച്ച് കാസർകോട് നീലേശ്വരം റെയിൽവെ സ്റ്റേഷനിൽ നിർമ്മിച്ച ശുചിമുറികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിക്കും ഹജ്ജ് സീസ ണോട് അനു ബ ന്ധിച്ച് സംസ്ഥാ നത്തെ പാസ്പോർട്ട് സേവാകേന്ദ്രങ്ങളിലുണ്ടായ തിരക്ക് പരിഗണിച്ച് തൃശൂർ പാസ്പോർട്ട് സേവാകേന്ദ്രം അടുത്ത ശനിയാഴ്ചയും തുറന്ന് പ്രവർത്തിക്കും തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ഹജ്ജ് തീർത്ഥാടകരുടെ സൌകര്യാർത്ഥമാണ് ഇതെന്ന് റീജണൽ പാസ്പോർട്ട് ഓഫീസർ കൊച്ചിയിൽ അറിയിച്ചു ഏത് ജില്ലയിൽ നിന്നുള്ള അപേക്ഷകർക്കും പാസ്പോർട്ട് ഓഫീസായി കൊച്ചി തെരഞ്ഞെടുത്ത് ഓൺലൈനായി അപ്പോയ്മെന്റ് എടുക്കാമെന്നും അദ്ദേഹം പറഞ്ഞു സ്വാമി സന്ദീപാനന്ദഗിരിയുടെ ആശ്രമത്തിലെ അക്രമങ്ങളിൽ ഇടതുപക്ഷത്തിന്റെ പ്രതിഷേധ പരിപാടി വൈകിട്ട് തിരുവനന്തപു രത്ത് നടക്കും